രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം

സി യെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചു

ഇത് സൌകരൃപ്രദവും സുഖകരവുമായ യാത്രയുടെ പുതുയുഗത്തിന് തുടക്കം കുറിക്കും

ഡൽഹി മെട്രോയുടെ എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ പൂർണ്ണമായും പ്രവർത്തനസജ്ജമായ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് സർവീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും റുപേ ഡെബിറ്റ് കാർഡുപയോഗിച്ച് ആർക്കും രാജ്യത്ത് എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ യാത്ര ചെയ്യാം

അടുത്ത വർഷം മധ്യത്തോടെ ഡൽഹി മെട്രോയുടെ മറ്റ് മേഖലകളിലും ഇത് പ്രാവർത്തികമാവും ന്യൂസ് ഡെസ്ക് ആകാശവാണി

മഹാരാഷ്ട്രയിലെ സംഗോളയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഷാലിമാറിലേക്കുള്ള കിസാൻ ട്രെയിൻ സർവീസാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കേടുകൂടാതെ അതത് സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നതാണ് ഈ ട്രെയിൻ

ജയശങ്കർ ഖത്തറിലെ വാണിജ്യ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലെ നിക്ഷേപ സാധൃതകൾ അദ്ദേഹം വിശദീകരിച്ചു രണ്ട് ദിവസത്തെ ഗൾഫ് സന്ദർശനത്തിനിടെയാണ് ശ്രീ

ഇരുരാജൃങ്ങളും തമ്മിലുള്ള വാണിജൃ പങ്കാളിത്തം ശക്തമാക്കുന്നതിനെ വിദേശ കാര്യ മന്ത്രി അഭിനന്ദിച്ചു ആത്മനിർഭർ ഭാരതിൽ നിരവധി പുതിയ അവസരങ്ങളുണ്ടെന്നും അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു ഖത്തർ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർപേഴ്സൺ ഷേഖ് ഖലീഫ ഖത്തറി ബിസിനസ് മെൻ അസോസിയേഷൻ ചെയർമാൻ ഷേഖ് ഫൈസൽ എന്നിവർക്കും ശ്രീ ജയ്ശങ്കർ നന്ദി അറിയിച്ചു ഖത്തർ നാഷണൽ മ്യൂസിയം സന്ദർശിച്ച വിദേശകാരൃമന്ത്രി ഖത്തറുമായി വൃാപാര ബന്ധങ്ങൾക്ക് ഗുജറാത്ത് നിർണ്ണായക പാതയായിരുന്നുപ്പ്രെന്ന് ചൂണ്ടിക്കാട്ടി

ഇതു സംബന്ധിച്ച് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശം നൽകി

കോവിഡ് സാഹചര്യത്തിൽ പൌരന്മാരും വാഹന കമ്പനികളും മറ്റ് ഏജൻസികളും നേരിടുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് തീരുമാനം

വീണ്ടും ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും തീയതി കർഷകർക്ക് നിശ്ചയിക്കാമെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു

പട്ടികജാതി പ്ലട്ടിൿവ്ർഗ്ഗ വിഭാഗക്കാർ പ്രായപൂർത്തിയാകാത്തവർ തൂടങ്ങിയ വിഭാഗങ്ങൾക്കിടയിലെ മതം മാറ്റം സംബന്ധിച്ചും പൂ്തിയ്ട് നിയമം വൃവസ്ഥ ചെയ്യുന്നുണ്ട്

ജനിതകമാറ്റ്ം സ്രംഭവിച്ച കൊറോണ വൈറസ് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ രോഗ നിരീക്ഷണത്തിനുള്ള പരിശോധന ഉപകരണം വ്യാങ്ങ്ാനും സംസ്ഥാനത്ത് നിരീക്ഷണവും പരിശോധനയും കർശനൂമാക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി

മടങ്ങിയെത്തി ഏഴാം ദിവസമാണ് ഇനി ആർ

ഹോട്ടലുകളിലും താമസ കേന്ദ്രങ്ങളിലും സ്വന്തം ചെലവിൽ പരിശോധന നടത്താം

രോഗസാധൃത യുള്ളവരിലേക്ക് ആദൃവും പിന്നീട് മറ്റുള്ളവരിലേക്ക് ആവശ്യമായ പ്രതിരോധ മരുന്ന് എത്തിക്കുമെന്നും അവർ വൃക്തമാക്കി

എസ് ജർമ്മൻ മരുന്നു കമ്പനികളായ ഫൈസർ ബയോൺടെക്ക് വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ വിതരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു

എൽ ഫുട്ബോളിൽ ഹൈദരാബാദിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തി

ഇന്ന് ബംഗളുരു എഫ്

ജില്ലാ കളക്ടറാണു കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി

ദക്ഷിണ ചൈനാ കടലിലാണ് ഇരുരാജ്യങ്ങളുടെയും നാവിക സഹകരണത്തിന്റെ ഭാഗമായി പാസ്സെക്സ് എന്ന പേരിട്ട നാവികാഭ്യാസം നടത്തിയത്